കോവിഡ് മഹാമാരിയെ നേരിടുന്നതിൽ ആഭ്യന്തര ആഗോള ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കണ്ടെത്തിയിട്ടില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ മരുന്ന് നിയന്ത്രണ അതോറിറ്റി

മരുന്നൂകളും മറ്റ് അവശ്യവസ്തുക്കളും ഇന്ത്യ ഇതിനായി ലഭ്യമാക്കിയ്തായും ഇന്ത്യ ഫിൻലൻഡ് വിർച്ചൽ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു

ലോകജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ചർച്ചകളാണ് സമ്മേളനത്തിൽ നടക്കുകയെന്ന് പ്രധാനമന്ത്രി ടിറ്ററിലൂടെ അറിയിച്ചു

ഇന്ത്യൻ ജനതയ്ക്കും അദ്ദേഹം മൂീരനായകനാണെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

വിദേശരാജ്യങ്ങളിൽ കോവിഡ് വാക്സിൻ എത്തിക്കുന്നതിനുള്ളതാണ് വാക്സിൻ മൈത്രി ദൌത്യം ഇതിനു പുറമേ രാജ്യസഭയിൽ ഇന്ന് റെയിൽവേ ഭക്ഷ്യ സംസ്കരണ വ്യവസായം ടൂറിസം മന്ത്രാലയങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ചും ചർച്ച നടക്കും ലോക്സഭയിൽ ഗതാഗത ഭവന എന്റർമകാര്യ മന്ത്രാലയങ്ങളു ടെയും ആരോഗ്യ കുടുംബിക്ക്ഷ്മ മന്ത്രാലയത്തിന്റെയും ധനാഭ്യർത്ഥനയ്ക്ക് മേലുള്ള ക്ട്രിച്ചിയും വോട്ടിംഗും നടക്കും അതേസമയം ബി ജെ പി ഇന്ന് എല്ലാ അംഗങ്ങളും ലോക്സഭയിൽ ഹാജരാകണമെന്ന് ആവൃശ്യപ്പെട്ട് വിപ്പ് നൽകിയിട്ടുണ്ട്

പൊതു ജീവിതത്തിൽ ഇരുവരും നൽകിയ സംഭാവനകൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള സഭയിൽ അനുസ്മരിച്ചു

ഹിമാചൽപ്രദേശിൽ നിന്നുള്ള ബി ജെ പി എം പി സ്വരൂപ് ശർമയെ ് ഡിൽഹിയിലെ വസതിയിൽ ഇന്ന് മരിച്ചനിലയിൽ കണ്ടെത്തുകീയായിരുന്നു

മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർഥികൾ പരമാവധി വോട്ടർമാരെ നേരിൽക്കാണാനുള്ള തിരക്കിലാണ്

മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് മാത്രമാണ് ഇനി കോൺഗ്രസ് സ്ഥാനാർഥിയെ പ്രഖ്യാപിക്കാനുള്ളത് മുതിർന്ന നേതാവ് ശോഭ സുരേന്ദ്രനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കാൻ ബിജെപി തീരുമാനിച്ചു മത്സരചിത്രം വ്യക്തമായതോടെ ദേശീയ സംസ്ഥാന നേതാക്കളുടെ പര്യടനത്തിനും തുടക്കമാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജില്ലാ പര്യടനത്തിന് ഇന്ന് വയനാട്ടിൽനിന്ന് തുടക്കമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തിക്കു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്നിവര്ട്ടിക്ക്മുള്ള നേതാക്കൾ വിവിധ ജില്ലകളിൽ പൊതുയോഗങ്ങളിൽ പ്രിങ്കെടുക്കും

കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും വൻതോതിലുള്ള ജനപങ്കാളിത്തമാണ് പൊതുയോഗങ്ങളിൽ കാണുന്നത്

എന്നാൽ തമിഴ്നാട്ടിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ആശ ങ്കകൾ സൃഷ്ടിക്കുന്നു പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് മുന്നൊ രുക്കങ്ങൾ വിലയിരുത്താനായി പോലീസ് നിരീക്ഷകൻ അനിൽ ശർമ ഇന്ന് സംസ്ഥാനത്തെത്തും

പശ്ചിമ ബംഗാളിലും അസമിലും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുളള അവസാന തീയതി ഇന്നാണ് കേന്ദ്രമന്ത്രി അമിത് ഷ്ട് ഉൾപ്പെടെയുള്ള ബിജെപി നേതാ ക്കളും മുതിർന്ന കോൺഗ്രസ് ന്തോക്കളും അസമിൽ പ്രചാരണ രംഗത്ത് സജീവമാണ്

എഐ എഡിഎംകെ കോൺഗ്രസ് ബിജെപി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതിനകം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കഴിഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഓരോവർഷവും നിരവധി ക്ടാരണങ്ങൾകൊണ്ട് യൂറോപ്പിൽ ആയിരകണക്കിന് ജനങ്ങളിൽ ർക്തം കട്ടപിടിക്കുന്ന സാഹചരൃങ്ങൾ ഉണ്ടാകുന്നുണ്ട് വാക്ട്സിന്റെ ഉപയോഗംകൊണ്ട് ഇത്തരം കേസുകളിൽ വർദ്ധനവ് ഉണ്ടാകുന്നതായി റിപ്പോർട്ടില്ലെന്നും ഇ അറിയിച്ചു വാക്സിൻ രക്തം എം എ കട്ടപിടിക്കാൻ ഇടയാക്കുമെന്നതിന് തെളിവില്ലെന്ന് ലോകാരോഗ്യ സംഘടനയും വൃക്തമാക്കിയിട്ടുണ്ട്

സ്ത്രീകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സഹായകമാകുന്ന നിരവധി വിഷയങ്ങൾ ഫോറം ചർച്ച ചെയ്തു കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് യോഗത്തിന് പരസ്പര നേതൃത്വം നൽകിയത് സഹകരണത്തിലൂടെ ലിംഗ അസമത്വങ്ങളും സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത മുന്ന് രാഷ്ട്രങ്ങളിലെയും മന്ത്രിമാർ വ്യക്തമാക്കി

പൊതുമേഖലാ സ്ഥാപനമായ ഹാൻഡിക്രാഫ്റ്റ്സ് ആന്റ് ഹാൻഡ്ലൂംസ് എക്സ്പോർട്ട് കോർപ്പറേഷൻ അടച്ചുപൂട്ടാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭ യോഗം അംഗീകാരം നൽകി

ചില ട്വീറ്റു കൾ നീക്കം ചെയ്യണമെന്ന് റഷ്യയുടെ നിർദ്ദേശം ഒരു മാസ ത്തിനകം നടപ്പാക്കിയില്ലെങ്കിലാവും വിലക്ക് ഏർപ്പെടുത്തുക പോണോഗ്രഫി ആത്മഹത്യാ പ്രേരണ ചൈൽഡ് മയക്കുമരുന്നുപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ട്വീറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതായാണ് ട്ടിറ്ററിനെതിരെ റഷ്യ ഉയർത്തിയിരിക്കുന്ന ആരോപണം

ഹരിയാന ഉത്തർപ്രദേശ് മത്സരവും ത്ധാർഖണ്ഡ് ഒഡീഷ് മത്സരവുമാണ് ഇന്ന് നടക്കുക